സ്വമിത്വ പദ്ധതി രാജ്യത്തെ ഗ്രാമങ്ങളിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിൽ ചികിത്സ്യിി്ലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഒരുലക്ഷത്തിലേക്ക് അടുക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സക്രിയമായ ജനപങ്കാളിത്തം ആവശ്യമെന്ന് മുഖ്യമന്ത്രി

ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരമായ നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരമായ റാഫേൽ നദാലും ഇന്ന് ഏറ്റുമുട്ടും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

പദ്ധതി ആത്മനിർഭർ ഭാരതത്തിന്റെ മറ്റൊരു ചുവടുവയ്പ്പാണെന്നും ശ്രീ മോദി പറഞ്ഞു മധ്യപ്രദേശ് യുപി ഹരിയാന ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കളുമായി സംവദിച്ച പ്രധാനമന്ത്രി പ്രോപ്പർട്ടി കാർഡ് ജീവിതനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകി ഗ്രാമീണ ഇന്ത്യയുടെ സമഗ്രവികസനത്തിലേക്ക് നയിക്കുന്ന പ്രോപ്പർട്ടി കാർഡുകൾ വഴി ഗ്രാമീണർക്ക് എളുപ്പത്തിൽ വായ്പ ലഭ്യമാകുമെന്ന് പരിപാടിയിൽ സംബന്ധിച്ച കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിങ് തൊമർ പറഞ്ഞു ഗ്രാമീണതലത്തിൽ സ്വത്തുക്കളുളട മൂല്യനിർണയം നടത്തി ഉടമസ്ഥർക്കു നൽകുന്ന അവകാശരേഖ്യാണ് സ്ത് കാർഡ് ആദ്യ ഘട്ടത്തിൽ ഉത്തർപ്രദേശ് ഹരിിയ്ക്ന് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക എന്നീ ആറ്റു സംസ്ഥാനങ്ങളിലെ ആറു ലക്ഷത്തിലധികം ഗ്രാമീണർക്കാണ് കൃഇതിന്റെ പ്രയോജനം ലഭിക്കുക ബാങ്ക് വായ്പകൾ ലഭ്യമാക്കു്ണതിനും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നേടുന്നതിനുമുള്ള ആസ്ത്രിക് രേഖയായി സ്വത്ത് കാർഡുകൾ ഉപയോഗിക്കാനാകും

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

നിലവിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ കേരളം മൂന്നാം സ്ഥാനത്താണ്

ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുകളിൽ ഒന്നാണ് ഇത്

ഒക്ടോബർ നവംബർ മാസങ്ങൾ കേരളത്തിലെ കോവിഡ് വ്യാപനത്തേയും അതുമൂലമുള്ള മരണ നിരക്കിനേയും സംബന്ധിച്ച് ഏറ്റവും നിർണ്ണായകമായ ഘട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എന്റെ ശബ്ദം നമ്മുടെ തുല്യ ഭാവി എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാഘോഷങ്ങളുടെ പ്രമേയം

ഈ ബാലികാ ദിനത്തിൽ ബേഠി ബചാവോ ബേഠി പഠാവോ എന്ന നയത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കാണമെന്ന് കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടു പെൺകുട്ടികൾക്കായി തുല്യതയുടെ സാമൂഹികാന്തരീക്ഷം തീർക്ക്റ്റും അവരുടെ വൃക്തിത്വം പൂർണമായി പ്രകാശിപ്പിക്കാൻ അവസരമുാക്കാനും സംസ്ഥാന ആരോഗ്യ മന്ത്രി കെ കെ ഷൈലജ ആഹാനം ചെയ്തു

ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഫോറൻസിക് വിദഗ്ധരടങ്ങുന്ന സംഘം ഉടൻ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് സിബിഐ വൃത്തങ്ങൾ അറിയിച്ചു ഹാത്രസ് സംഭവത്തിൽ ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്രത്തോട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു

ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ കന്നി കിരീടം സ്വന്തമാക്കിയ പോളിഷ് കൌമാരതാരം ഈഗ ഷ്യാൻടെക് ആദ്യമായി ഗ്രാൻസ്താം നേടുന്ന പോളിഷ് വനിതാ താരമായി അമേരിക്കയുടെ നാലാം സീഡ് സോഫിയ കെനിനെ അട്ടിമറിച്ചാണ് സീഡ് ചെയ്യപ്പെടാത്ത് താരമായ ഈഗ കിരീടം നേടിയത്

അബുദാബി യിൽ നടക്കുന്ന മറ്റൊരു മ്ത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കിങ് സ് ഇലവൻ പഞ്ചാബിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ട് റൺസിന് തോൽപിച്ചു

തങ്ങളുടെ പ്രാദേശിക ആക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചതായി യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഓബ്രിയൻ പറഞ്ഞു

കാഡ് രാജ്യങ്ങൾക്കു നേരെയുള്ള ചൈനയുടെ ഭീഷണിയും പോംപിയോ ചൂണ്ടിക്കാട്ടി

മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ലക്ഷ്യം വച്ചുള്ള ചൈനയുടെ നീക്കങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ആശങ്കയുള്ളതായും അവർ വ്യക്തമാക്കി തായ്വാന്റെ വ്യോമയാന മേഖലയിലേക്ക് സൈനിക വിമാനങ്ങൾ അയക്കുന്നത് ഉൾപ്പടെയുള്ള നീക്കങ്ങൾ ചൈന വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയുടെ തായ്വാൻ സന്ദർശനം നടക്കുന്ന വേളയിൽ തായ്വാൻ കടലിടുക്കിൽ ചൈന സൈനികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു

്ഡൽഹിയിൽ നിന്നുള്ള ചൈതന്യ വെങ്കിടേശ്വരൻ ആണ് ഈ അ്തു്ല്യ് അവസരം ലഭ്യമായത്